വിദ്യാഭ്യാസത്തെ ബന്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര ബജറ്റ് കരുത്ത് പകരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ ന് ആരും മടിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

വൈദ്യുതീകരിക്കുമെന്ന് റയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ

ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ അവസാന മൽസരം നാളെ

വിദ്യാഭ്യാസ മേഖലയിൽ ബജറ്റ് നിർദേശങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വെബ്ബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

വിശദാംശങ്ങളുമായി മൈത്രി ബി രാജി

ഇതിലൂടെ കൂടുതൽ ആളുകൾക്ക് വാക്സിൻ നൽകി വാക്സിനേഷൻ വേഗത്തിലാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു

ഇത് അവരുടെ വാക്സിൻ ടൈംടേബിളിന്റെ ഭാഗമായി പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജന കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ പദ്ധതി സമാനമായ സംസ്ഥാന സർക്കാരിന്റെ ആരോഗൃ ഇൻഷുറൻസ് പദ്ധതി എന്നിവയുടെ ഭാഗമായിട്ടുളള സ്വകാര്യ ആശുപത്രികളും വാക്സിനേഷൻ കേന്ദ്രങ്ങളാക്കാനും കേന്ദ്രസർക്കാർ തീരുമാനിച്ചു

രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്ക് വാക്സിൻ നൽകുന്ന രണ്ടാംഘട്ടത്തിൽ തിങ്കളാഴ്ച പ്രധാനമന്ത്രിയും നിരവധി കേന്ദ്രമന്ത്രിമാരും വാക്സിൻ സ്പ്രീക്രിച്ചിരുന്നു

കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ ആരും മടിക്കരുതെന്ന് വാക്സിൻ സ്വീകരിച്ച ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു

അടുത്ത ആഴ്ചയോടെ സ്ഥാനാർത്ഥികളുടെ കാരൃത്തിൽ ഏകദേശ തീരുമാനമുണ്ടാവുമെന്നാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ നൽകുന്ന സൂചന സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ തിരക്കിലാണ് സംസ്ഥാനത്ത് മുന്നണികൾ സിപിഎമ്മിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ജില്ലാ സെക്രട്ടേറിയേറ്റുകൾ സംസ്ഥാനക്കമ്മിറ്റിയ്ക്ക് കൈമാറിക്കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തീരുമാനമെടുക്കുന്നതിനായി സി

ഐ യുടെ സംസ്ഥാന നിർവ്വാഹക സമിതി യോഗും ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു

ഡി എഫ് ഏകോപന സ്യമിൽ യോഗത്തിലും സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ നടന്നും യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് ലോഗോയും ഇന്ന് പ്രകാശ്യന്ത് ചെയ്തു കോൺഗ്രസും കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗ്പും തമ്മിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് തുടർന്നു ബിജെപി ബിഡിജെഎസ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തിരുവനന്തപുരത്ത് ചേർന്ന എൻഡിഎ യോഗത്തിൽ നടന്നു

ശ്രീധരൻ വി മുരളീധരൻ ഒ രാജഗോപാൽ കെ സുരേന്ദ്രൻ കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരാണ് കമ്മിറ്റിയിലുള്ളത്

ഏഴാം തീയതി തൃശൂരിൽ എത്തുന്ന കമ്മീഷണർ എട്ടാം തീയതി എറണാകുളത്ത് ജില്ലാ വരണാധികാരികൾ പോലീസ് മേധാവികൾ എന്നിവരുമായി ചർച്ച നടത്തും അടുത്ത ദിവസം കോട്ടയം എറണാകുളം ജില്ലകളിലെ വിവിധ ഇടങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തും

എസ് ഐ

എസ് ആദായ നികുതി കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ് നിരീക്ഷകരായി തിരഞ്ഞെടുത്തിട്ടുള്ളത്

ഉദ്യോഗസ്ഥർ എല്ലാവരും കൃത്യമായി പങ്കെടുക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു